വയോജനങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധയും പിന്തുണയും നൽകണമെന്ന് ഉപരാഷ്ട്രിപ്പതി ്എം

നൂറു ദിന കർമ്മ പരിപാടി പ്രഖ്യാപിച്ച് കേരള സർക്കാർ

നാളെ തിരുവോണം

നൂതന ആവിഷ് കാരങ്ങൾ നിർവഹിക്കുന്നതിലും പരിഹാരം തേടുന്നതിലും ഇന്ത്യാക്കാർക്ക് പ്രത്യേകിച്ചും യുവതലമുറയ്ക്ക് കഴിവുണ്ട് ഈ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻകീ ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു ആത്മനിർഭർ ഭാരത് ആപ്പ് ഇന്നൊവേഷൻ ചലഞ്ചിൽ യുവാക്കൾ ആവേശപൂർവമാണ് പങ്കെടുത്തതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ഏഴ് ലക്ഷം കോടി രൂപയുടെ കളിപ്പാട്ട വിപണിയിൽ ത്ത്യയുടെ പങ്കാളിത്തം കുറവാണ് കമ്പ്യൂട്ടർ ഗെയിം ഉൾപ്പെടുള്ള ഈ മേഖലയിൽ ഇന്ത്യൻ യുവത്വം കടന്നു ചെല്ലണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു

കലോൽസവങ്ങളിൽ തദ്ദേശീയ കളിപ്പാട്ട നിർമ്മാണം ഉൾപ്പെടുത്തുമെന്നും പ്രാദേശിക കളിപ്പാട്ട വൈവിധ്യം കണ്ടെത്താനും വികസിപ്പിക്കാനും വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ സമൂഹമാധ്യമത്തിൽ നൽകിയ സന്ദേശത്തിലാണ് അദ്ദേഹത്തിന്റെ ആഹ്വാനം വീട്ടിൽ വൃദ്ധരായവർ ഉണ്ടെങ്കിൽ കോവിഡുമായി ബന്ധപ്പെട്ട് മറ്റു കുടുംബാംഗങ്ങൾ കൂടുതൽ മുൻകരുതൽ എടുക്കണമെന്നും ശ്രീനായിഡു പറഞ്ഞു

ഏറ്റവും കൂടുതൽ രോഗബാധിതർ ഉള്ള അമേരിക്കയിൽ കോവിഡ് രോഗികൾ അറുപത് ലക്ഷത്തോട് അടുക്കുന്നു

ആഗോള മരണനിരക്കിൽ അഞ്ചിലൊന്നും അമേരിക്ക യിലാണ്

നൂറു ദിവസം കൊണ്ട് നൂറ് പദ്ധതികൾ നടപ്പാക്കുമെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു

വോയ്സ് തിരുവോണം മലയാളികളുടെ മനസിൽ പകരുന്ന ഉണർവും ഉൻമേഷവും സമാനതകളില്ലാത്തതാണ്

സമൃദ്ധിയു ടേയും സമത്വത്തിന്റേയും ഗതകാല സ്മരണയിൽ നാളെ തിരുവോണം ന്യൂസ് ഡെസ്ക് ആകാശവാണി

രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമാണ് ഓണമെന്ന് രാഷ്ട്രപതി പറഞ്ഞു കേരള ഗ്വർണർ ് മുഖ്യമന്ത്രി മന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് എന്നിവരും ഓണാശ്യസ്കൾ നേർന്നു

തുടർന്നും ഇത്തരം ഇടപാടുകൾക്ക് ചാർജ് ഈടാക്കരുതെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു

ബാങ്കിംഗ് നയം പൂർത്തിയാക്കി വായ്പ ആവശ്യമുള്ളവരെ കണ്ടെത്തി സുഗമമായും വേഗത്തിലും വായ്പ ലഭ്യമാക്കുന്ന വിഷയവും ചർച്ചയിൽ പരിഗണിക്കും

സമകാലിക വ്യാപാര സൌകര്യം സമ്പ്രദായങ്ങളും കസ്റ്റംസ് റെഗുലേറ്ററി നടപടിക്രമങ്ങളും അനുസരിച്ച് ആധുനീകരിക്കാനാണ് തീരുമാനം

ൂ രജൌരി ജില്ലയിൽ നൌഷേരയിൽ നിയന്ത്രണരേഖയ്ക്കു സ്ക്മീപ്പമാണ് ഇരുസൈന്യവും തമ്മിൽ വെടിവയ്പുണ്ടായത്

ഇന്നു പുലർച്ചെ മുതൽ തന്നെ നിയന്ത്രിണ്രേഖയിൽ പല മേഖലകളിലും പാകിസ്ഥാൻ വെടിനിർത്തർ ലംഘനം നടത്തുകയാണെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു

മധ്യപ്രദേശിലെ നദികൾ കരകവിഞ്ഞതിനെ ത്തുടർന്നാണ് ഗ്രാമങ്ങളിൽ വെള്ളം കയറിയത്